പ്രളയക്കെടുതി നേരിടാൻ സംസ്ഥാനത്തിന് കേന്ദ്രം സാധ്യമായ എല്ലാ സഹായവും നൽകും സ്ഥിതിഗതി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ അവലോകുനം ചെയ്തു

സംസ്ഥാനത്തിന്റെ ജൈവ്ട്ട്രെവ്പിധൃ മേഖലയിൽ പ്രളയം ഏൽപിച്ച ആഘാതത്തെക്കുറിച്ച് പഠനം നടത്തുമെന്ന് മുഖ്യമന്ത്രി

സംസ്ഥാനത്തി നാ്ല് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളില്പ് പ്രവേശനത്തിൽ സ്റ്റേ തുടരുമെന്ന് സുപ്രിംകോടതി

വെള്ളപ്പൊക്കം കനത്ത നാശം വിതച്ച പമ്പയെ പുനരുദ്ധരിക്കാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ്

പ്രളയം മുറിവേൽപിച്ചിട്ടും ഇടുക്കിയിൽ നീലക്കുറിഞ്ഞി പൂവിട്ടു ട്ടട്ട ജെ

നദ്ദ സംസ്ഥാനത്തെ പ്രളയക്കെടുതിക്ക് ശേഷമുള്ള ദുരിതാശ്വാസ സാഹചര്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ അവലോകനം ചെയ്തു സംസ്ഥാനത്തിന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു കേരളത്തിലെ സ്ഥിതിവിശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രാലയം തുടർച്ചയായി നിരീക്ഷിച്ച് വരികയാണെന്നും ഏത് സാഹചര്യവും നേരിടാൻ തയാറാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ആവശ്യമായ മരുന്നുകളും ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധരുടെ സഹായവും സംസ്ഥാനത്തിന് ലഭ്യമാക്കുമെന്നും ശ്രീ

നേരത്തെ കേന്ദ്രമന്ത്രി ചാല്ക്കുടി താലൂക്ക് ആശുപത്രിയും വി ആർ പുരത്തെ ദുരിതാശ്ചാസ ക്യാമ്പും എറണാകുളം ജില്ലയിലെ മള്ളൂശ്ശേരി ക്യാമ്പും സന്ദർശിച്ചിരുന്നു

തന്റെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന ജൈവവൈവിധൃ ബോർഡിന്റെ ജൈവ വൈവിധ്യമേഖലയിലെ മാറ്റം പഠിക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു തദ്ദേശസ്ഥാപനങ്ങളിലെ സമിതികളുമായി ചേർന്നാണ് ജൈവ വൈവിധ്യ പരിപാലന പഠനം പ്രാദേശികമായി സൂക്ഷ്മമായി നടത്തുന്ന സർവ്വെ ഒരു മാസത്തിനകം പൂർത്തിയാകും

ജൈവവൈവിധ്യമേഖലയിലെ വിദഗ്ധരായ നൂറ് പേരെ പഠനത്തിന് നേതൃത്വം നൽകാൻ ചുമതലപ്പെടുത്തും പഠന റിപ്പോർട്ട് കണക്കിലെടുത്താകും സംസ്ഥാനത്തിന്റെ സുസ്ഥിരവികസനത്തിന് ഉതകുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു കെ കെ ശൈലജ പ്രളയാനന്തര കേരളത്തിൽ സ്ത്രീകളുടേയും കുട്ടികളുടേയും ആവശ്യങ്ങൾ അറിയ്ടാനും അവരുടെ നഷ്ടങ്ങൾ വിലയിരുത്തുവാനുമായി പഠനം നടത്താൻ തീരുമാനിച്ചതായി മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു വനിതാ ശിശുവികസന വകുപ്പും ആസൂത്രണ ബോർഡും സംയുക്തമായാണ് പഠനം നടത്തുക സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടായ നഷ്ടങ്ങൾ അപഗ്രഥിച്ച് അവയിൽ ഏതൊക്കെ അടിയന്തിരമായി പുനർ നിർമ്മിക്കാൻ കഴിയും എന്ന് പരിശോധിക്കും

തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡാമുകൾ തുറന്നതല്ല മറിച്ച് ശക്തമായ മഴയാണ് പ്രളയത്തിന് കാരണമായതെന്ന് ജലകമ്മിഷൻ വ്യക്തമാക്കിയിരുന്നു

ഇത്തരം ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ജലകമ്മിഷന്റെ കണ്ടെത്തലുകളെന്നും ശ്രീ മാത്യു ടി തോമസ് പറഞ്ഞു

ഹരിതകേരളം മിഷന്റെയും തദ്ദേശസ്യുംഭരണ വകുപ്പിന്റെയും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും നേതൃ ത്വത്തിലാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന കിണർവെള്ള ഗുണ പരിശോധന പരിപ്പാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണ്റെറ്റും കേരള വാട്ടർ അതോറിറ്റിയും സംരംഭത്തിൽ പങ്കാളിക്ളാണ്

തൊടുപുഴ വയനാട് ഒറ്റപ്പാലം വർക്കല എന്നിവിടങ്ങളിലെ കോളെജുകൾക്ക് ഹൈക്കോടതി നൽകിയ പ്രവേശന അനുമതിയാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നത് ഈ കോളെജുകളിലെ പ്രവേശനത്തിന് എതിരെ മെഡിക്കൽ കൌൺസിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേയാണ് സുപ്രീംകോടതി സ്റ്റേ തുടരുമെന്ന് വൃക്തമാക്കിയത്

മെഡിക്കൽ കൌൺസിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ മറുപടി നൽകാൻ പരമോന്നത കോടതി നാല് കോളേജുകൾക്കും സമയം അനുവദിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെവരെ ലഭിച്ചു

എന്നാൽ അർഹതുണ്ടായിട്ടും ലഭിക്കുന്നില്ലെന്ന് പരാതിയുള്ളവർ തഹസീൽദാർക്ക് അപേക്ഷ നൽകണമെന്നും റവന്യൂവകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു

പ്രളയം പമ്പാ ത്രിവേണിയെ അടിമുടി തകർത്തിരിക്കുകയാണ് മണ്ഡലകാലം ആരംഭിക്കാൻ രണ്ട് മാസം അവശേഷിക്കേ ഗവൺമെന്റ് സഹായം കൂടിയേ കഴിയൂ ബെയ്ലി പാലം അടിയന്തരമായി നിർമ്മിക്കണം

ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതിനെ തുടർന്നാണ് ചെറുതോണി ഡാമിലെ ഷട്ടറുകൾ അടച്ചത്

പദ്ധതി നടപ്പിലാക്കുന്നതിനായി ഒന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വൃക്തമാക്കി

മണക്കാട് സ്വദേശിനി നൽകിയ പരാതിയിലാണ് നടപടി

മൂന്നാറിലും രാജമലയിലും നീലവസന്തം കാണാൻ സഞ്ചാരികൾ എത്തിതുടങ്ങി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

ട്ടി പരിധിയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടും ്തിങ്കളാഴ്ച എ ഐ

സി നടത്താനിരുന്ന ബന്ദ് കേരളത്തിൽ യു ഡി എഫിന്റെ ഹർത്താലിയിരിക്കുമെന്ന് കെ

സി

പ്രളയ ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സാധാരണ ജീവിതത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഹർത്താൽ തടസ്സമാവില്ല

ലൈംഗിക ആരോപണ വിധേയനായ എം

ശശിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ആർജ്ജവം എൽ

എമ്മും കാണിക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ

സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവി പറഞ്ഞു